സർക്കാർ അടിയന്തിര നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ക്ഡൌണ്ടിൽ ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും മുഖ്യമന്ത്രിച്ച സംസ്ഥാനത്തെ സ്വകാര്യ ആശുപ്പത്രികളിലെ കോവിഡ് ചികിത്സാ ന് നിരക്ക് ഏകീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി

നടപടിയിൽ സർക്കാരിനെ അഭിനന്ദിച്ച് ഹൈക്കോട്ടതി

കോവിഷീൽഡ് വാക്സിൻ കേരളത്തിലെത്തി

ഓക്സിജൻ സിലിണ്ടറുകളും കേന്ദ്ര സർക്കാർ അനുവദിച്ചു

തിരുവനന്തപുരം മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

മുഖ്യമന്തി സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്കിൽ കഴിഞ്ഞ ദ ദിവസത്തെ ശരാശരി കണക്കാക്കുമ്പോൾ നേരിയ കുറവ് കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം എന്നീ ജില്ലകളിൽ നിരക്ക് കൂടുതലായി തന്നെ തുടരുകയാണ് ഈ ജില്ലകളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ നടപടികൾ തുടരും

എന്നാൽ ഗൌരവ്മേറിയ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ആരോഗൃ പ്രവർത്തകരുടെ അഭാവം ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തിര നടപടി സ്വീകരിച്ചുവരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു

പൾസ് ഓക്സീമീറ്റർ കുറഞ്ഞ നിരക്കിൽ ലഭൃമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

ഉത്തരവ് ലംഘിക്കുന്ന ആശുപത്രികളിൽ നിന്നും പത്തിരട്ടി തുടകുപ്പിഴ ഈടാക്കും

ചികിത്സാ നിരക്ക് സംബന്ധിച്ച ഏരാതീകൾ പരിശോധിക്കാൻ ്അപ്പീൽ അതോറിറ്റിയെ നിയോഗിച്ചിട്ടൂണ്ട് കൂടാതെ ഡി എം ഒ മാർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകാവുന്നതാണ്

പിപിഇ കിറ്റുകൾ മുതൽ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ നിരക്കുകളും ഏകീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയ തായാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് യാതൊരു കാരണവശാലും അമിത ചാർജ് ഈടാക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു

പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് കേരളം വാക്സിൻ വാങ്ങിയത്

ഈ വിഭാഗത്തിലുളള ഗുരുതര രോഗികൾക്കും സന്നദ്ധ സേനാംഗങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ആദ്യ പരിഗണന നൽക്കും

കോവിഡ് ഇന്ത്യ രാജ്യത്ത് പുതിയതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസം നേരിയ കുറവ് രേഖപ്പെടുത്തി

കടുത്ത പ്രമേഹം ഉള്ളവർക്കും ദീർഘകാലം ഐ

രോഗ ബാധയെക്കുറിച്ച് ഐ സി എം

കേരള കോൺഗ്രസ് എം രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതായാണ് സൂചന എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ആകാത്തതിനാൽ ചർച്ചകൾ വരുംദിവസ ങ്ങളിലും തുടരും ഒറ്റ എംഎൽഎ മാരുള്ള പാർട്ടികൾക്ക് മന്ത്രി സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ടും അനിശ്ചിതത്വം തുടരു ന്നതായാണ് റിപ്പോർട്ടുകൾ

സംഭവം നിരാശജനകമാണെന്നും കടുത്ത നടപടിയെടുക്കുമെന്നും തൃശ്ശൂർ ജില്ലാ കളക്ടർ എസ്

മഴ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം

കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സൃബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്

സ്വർണ വിലയിൽ മാറ്റമില്ല